കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്ക് ഒരുലക്ഷം കോടി ചെറുകിട രൂപയുടെ വായ്പ ലഭ്യമാക്കിയതായി ധനമന്ത്രാലയം

തുടർച്ചയായൂന്റ്ലൂം തവണയാണ് ഇൻഡോർ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് ഇന്ന് നടന്ന വിർച്യുൽ ചടങ്ങിൽ കേന്ദ്ര നഗരവികസന മന്ത്രി ്ഹർദ്ദീപ് സിംഗ് പുരി അവാർഡുകൾ സമ്മാനിച്ചു

കർഷകർക്ക് ഒരു ലക്ഷം കോടി രൂപയിലധികം വായ്പ ഇതിലൂടെ ലഭ്യമാക്കും

ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഇത് സഹായകമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു

ക്ടോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പന്ത്രണ്ടാമത് ് മെഡ് ടെക് ആഗോള സമ്മേളനം ന്യൂഡൽഹിയിൽഹ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇന്ത്യക്കും ലോകത്തിനാകെയും ആവശ്യമായ മരുന്ന് രാജ്യത്തെ മരുന്ന് നിർമ്മാണ മേഖല ലഭ്യമാക്കിയ്തായും അദ്ദേഹം പറഞ്ഞു

ജെ പി ഒഴികെ എല്ലാ കക്ഷി കളും വിമാനത്താവള സ്വകാര്യവൽക്കരണത്തെ എതിർത്തു നിയമ നടപടികൾ തുടരുന്നതിനൊപ്പം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ടുപോകാനും യോഗം തീരുമാനിച്ചു വിമാനത്താവളം സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമായി മാറ ണമെന്നാണ് പൊതുവികാരമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു

കേരള സർക്കാരിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇക്കാരൃത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിമാനത്താവള നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് ആദ്യമല്ല

നിലവിലെ ഹൈക്കോടതി വിധിക്ക് അനുകൂലമാണ് കേന്ദ്ര തീരുമാനം തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നിലപാട് കൈക്കൊള്ളുന്നതിൽ നിന്ന് കേരളത്തിന്റെ ഭരണപക്ഷം പിൻമാറണമെന്നും ശ്രീ മുരളീധരൻ ആവശ്യപ്പെട്ടു

ആലപ്പുഴ്ക്കാ്ടരൻ ജോയ് സെബാസ്റ്റ്യന്റെ ടീം ഡിസൈൻ ചെയ്ത വീ ക്ട്ൺസോൾ എന്ന സോഫ്റ്റ് വെയർ ആണ് ഒന്നാം സ്ഥാനത്തെത്തിയുത്

വോയ്സ് രാജ്യത്ത് രോഗമുക്തി ് നിരക്ക് വർദ്ധിക്കുകയും മരണനിരക്ക് കുറയുകയും ചെയ്യുന്നത് കാര്യക്ഷമമായ സർക്കാർ ഇടപെടലുകളിലൂടെ ആണ്

ഏകദേശം മുപ്പതോളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മരണ നിരക്ക് ദേശീയ ശരാശരിയെക്കാൾ കുറവാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ചെന്നൈയിൽ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ സംസ്ഥാന ആരോഗ്യ മന്ത്രി സി

ഡോക്ടർമ്മാരുടെ നിർദ്ദേശ പ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി അദ്ദേഹം ട്വീറ്ററിൽ കുറിച്ചു

അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്